സ്ഥിതിഗതികൾ കേന്ദ്ര ഗവൺമെന്റ് സൂക്ഷ്മമായി വിലയിരുത്തുന്നു

വൈറസ് ബാധയെ നേരിടാൻ കേരളം സുസജ്ജമെന്നും മന്ത്രി

ദേവീന്ദർ സിംഗിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കാശ്മീരിൽ വിവിധ ഇടങ്ങളിൽ എൻ

എ

പ്രധാനമന്ത്രി നരേന്ദ്ര പ്രത്യേക താല്പര്യമെടുത്ത് എല്ലാ കാര്യങ്ങളിലും മോദി മേൽനോട്ടം വഹിക്കുന്നുണ്ട് ജാഗ്രത പാലിക്കണമെന്ന് ആവശ്യപ്പെട്ട് എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും ശ്രീ മോദി കത്തെഴുതി

തായ്ലന്റ് സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ എത്തുന്നവരെ വിമാനതാവളങ്ങളിൽ പരിശോധിക്കുന്നണ്ടെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി പറഞ്ഞു നേരത്തെ ചൈന ഹോംകോങ് എന്നിവിടങ്ങളിൽ നിന്ന് വരുന്നവരെ മാത്രമാണ് നിരീക്ഷിച്ചിരുന്നത്

ചൈനയിൽ ന്നിന്നും തിരികെയെത്തിയ വിദ്യാർത്ഥിയുടെ കൊറോണ്ട് ് വൈറസ് പരിശോധന പോസിറ്റീവാണ്

ചൈനീസ് പാസ്പോർട്ടുള്ളവർക്കും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ചൈനയിൽ താമസിക്കുന്നവർക്കും ഇത് ബാധകമാണ് ഇതിനോടകം ഇ വിസകൾ ലഭിച്ചിട്ടുള്ളവർക്കും ഇന്ത്യയിലേയ്ക്ക് സഞ്ചരി ക്കാനാവില്ല

ഒരു റിപ്പോർട്ട്

കർചീഫ് കൊണ്ടോ കൈകൾ കൊണ്ടോ മൂക്കും വായും പൊത്തിവേണം തുമ്മാൻ

കൊറോണ വൈറസ് വലിയ അപകടകാരിയല്ല അതിനാൽ പരിഭ്രാന്തരാകേണ്ട കാരൃമില്ല ചൈന ഹോങ്കോങ് തെക്ക് കിഴക്കൻ ഏഷ്യയിൽ നിന്നും അടുത്തിടെ എത്തിയവരുമായി സമ്പർക്കം ഒഴിവാക്കണം സാധാരണ പനിയുടെ ലക്ഷണങ്ങളാണ് കൊറോണ വൈറസ് ബാധയ്ക്കും ഉണ്ടാകുന്നത് പനിക്കൊപ്പം ചുമ ശരീരവേദന തൊണ്ട വേദന ശ്വാസോച്ഛാസത്തിന് പ്രയാസം എന്നിവയാണ് ലക്ഷണങ്ങൾ അടുത്ത് കാലത്ത് ചൈനയിൽ നിന്ന് എത്തിയവരിലോ വൈറസ് ബാധയുള്ളവരുമായി സമ്പർക്കം പുലർത്തിയവരിലോ വൈറസ് ബാധിതരെ പാർപ്പിച്ചിട്ടുള്ള ആശുപത്രിയിൽ ജോലി ചെയ്യുന്നവരിലോ ഈ ലക്ഷണങ്ങൾ കണ്ടാൽ വൈറസ് ബാധ സംശയിക്കാം ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇ യിൽ ഒരാൾക്ക് കൂടി കൊറോണ വൈറസ് ബാധിച്ചതായി രാജ്യത്തെ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു എന്നാൽ രോഗിയുടെ നില തൃപ്തികരമാണെന്നും അധികൃതർ അറിയിച്ചു

തീവ്രവാദ സംഘടനകളുമായുള്ള ബന്ധത്തെ തുടർന്ന് പോലീസ് ്ഡെപ്യൂട്ടി സൂപ്രണ്ട് ദേവിന്ദർ സിംഗ് അറസ്റ്റിലായതിന്റെ പശ്ചാത്തലത്തിലാണ് റെയ്ഡ് ഷോപ്പിയാൻ ജില്ലയിലാണ് പുതുതായി പരിശോധന നടത്തിയതെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ആകാശവാണിയോട് പറഞ്ഞു ഒരു ഗ്രാമമുഖ്യന്റെ വീട്ടിലും ഹിസ്ബുൾ മുജാഹിദീൻ തീവ്രവാദികളായ സൈദ് നവീദ് റാഫി അഹമ്മദ് എന്നിവരുടെ വീടുകളിലുമാണ് പരിശോധന നടത്തിയത് ഇവർ ദേവിന്ദർ സിംഗിനൊപ്പം അറസ്റ്റിലായിരുന്നു

ഹോ റാഫുഷിയിൽ കുപ്പിവെള്ള നിർമ്മാണ പ്താന്റ് സ്ഥാപിക്കുന്നതിനായി ആറാമതൊരു ്ധാരണാ പത്രവും ഒപ്പുവച്ചിട്ടുണ്ട് ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സഞ്ജയ് സുധീറും മാലെദ്വീപ് വിദേശകാര്യ മന്ത്രി അബ്ദുള്ള ഷാഹിദും അഡ്ഡു സിറ്റി കൌൺസിലും തമ്മിലാണ് ധാരണാപത്രം ഒപ്പിട്ടത്

കൂടുതൽ വിവരങ്ങളുമായി ലിഖിത

കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കാനും ഇന്ത്യയ്ക്ക് കഴിയുമെന്ന് അവർ ചൂണ്ടിക്കാട്ടി

അമേരിക്ക ഇന്ത്യ ബിസിനസ് കൌൺസിലും ബജറ്റിനെ സ്വാഗതം ചെയ്തു ലാഭ വിഹിത വിതരണ നികുതി ഒഴിവാക്കിയത് വിദേശ കമ്പനികളെ ഇന്തൃയിൽ പ്രവർത്തനം തുടങ്ങാൻ പ്രോത്സാഹിപ്പിക്കുമെന്ന് സംഘടന പ്രതികരിച്ചു ബജറ്റ് വളർച്ച ലക്ഷ്യമിട്ടുള്ളതും മാറ്റം കൊണ്ടു വരാൻ ഉതകുന്നതുമാണെന്ന് യു എസ് എ ഇന്ത്യ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കരുൺ റിഷി അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ക്ലെഹ്ദരാബാദിനടുത്ത് നന്ദി ഗ്രാമത്തിൽ കൻഹയിലുള്ള രാമചന്ദ്ര മിഷനിലെ സാധകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ വൃതൃസ്ത ഇടങ്ങളിൽ തിരക്കിട്ട പ്രചരണത്തിലാണ് ആം അദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ റാലികൾ നടത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ മെഹ്റം നഗറിൽ വീടുകൾ കയറി പ്രചരണം നടത്തി

വാർഷിക ഉദ്യാനോത്സവം ചൊവ്വാഴ്ച രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉദ്ഘാടനം ചെയ്യും

അറ്റക്കുറ്റപ്പണി നടത്തേണ്ട തിനാൽ തിങ്കളാഴ്ചകളിൽ സന്ദർശനം അനുവദിക്കുന്നതല്ല

നാഷണൽ കോൺഫറൻസിലെ അബ്ദുൾ മജീദ് ഭട്ട് ്ലാർമി ഗുലാനബി ഭട്ട് ഡോ മുഹമ്മദ് ഷാഫി എന്നിവരേയും പി ഡി

എ ഹോസ്റ്റലിൽ കരുതൽ തടങ്കലിൽ ആയിരുന്നു ഇവർ

എഫ് ജവാന്മാർക്കും ്നിസ്സാര പരിക്കേറ്റു

നാവികസേനയുടെ ഐ

കർണാടകയിലെ ഹുബല്ലിയിൽ തൊഴിൽ പരിശീലന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യവെയാണ് അദ്ദേഹം ഇക്കാരൃം പറഞ്ഞത്

അഭിഷേകത്തിന് മുമ്പുള്ള ചടങ്ങുകൾക്ക് ഇന്നലെ തുടക്കമായി

ജെ

ന്യൂഡൽഹിയിലെ ബി ജെ

ആസ്ഥാനത്ത് ബി ജെ

ദേശീയ ജനറൽ സെക്രട്ടറി പി മുരളീധര റാവുവിന്റെ സാന്നിധ്യത്തിലാണ് ഇന്ന് അവർ ബി ജെ

യിൽ ചേർന്നത്